കേന്ദ്ര അനുമതി കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു

തെരഞ്ഞെടുത്തു അനധികൃത ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജ്ജിതമാക്കി

ഇന്ന് പൂനെയിൽ ലോക വനിതാ ബോക്സിംഗ് ചാമ്പൃൻഷിപ്പിൽ ഇന്ത്യയുടെ ലവ്ലിനാ ബോർഗോഹെയ്നും ജമുന ബോറയും ക്വാർട്ടറിൽ

ന്യൂഡൽഹിയിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേകർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു

കേന്ദ്രഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു ഇതിന് കഴിഞ്ഞ ജൂലൈ മുതൽ പ്രാബല്യമുണ്ട്

കശ്മീരിൽ നിന്നും പലായനം ചെയ്യേണ്ടിവന്ന ശേഷം തിരിച്ചു വന്ന് സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയ കുടുംബങ്ങൾക്കുള്ള സമാശ്വാസ പാക്കേജിനും മന്ത്രിസഭായോഗം അ്ണുമതി നൽകി

റേഡിയോ ടെലിവിഷൻ എന്നിവയുമായി ബ്രുഡപ്പെട്ട് വിദേശ പ്രക്ഷേപകരുമായി ധാരണാപത്രം ഒപ്പിടാനും മ്ന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതുവഴി നൂതന സാങ്കേതിക വിദ്യകൾ ആകാശവാണിക്കും ദൂരദർശനും ലഭ്യമാകുമെന്ന് കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം സേവന മനോഭാവവും സമർപ്പണവും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

എസ്

ഒ

രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ വിധത്തിൽ വിദ്യാർത്ഥികളുടെ അറിവും നൈപുണ്യവും നൂതന ചിന്താഗതിയും മെച്ചപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

ഗഗൻ എനേബിൾഡ് മറൈനേഴ്സ് ഇൻസ്ട്രുമെന്റ് ഓഫ് നാവിഗേഷൻ ആന്റ് ഇൻഫ്ർമേഷൻ ജമിനി എന്ന ഉപകരണമാണ് കേന്ദ്രമന്ത്രി ഹർഷ്വർദ്ധൻ ഇന്നുള്ള് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയത്

സാറ്റലൈറ്റ് സ്ക്ക്യത്തോടെയാണ് പ്രവർത്തനം

മഞ്ഞ്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് പരീക്ഷകളെല്ലാം നടത്താനാണ് സ്കൂൾ വിദ്യാഭ്യാസ ബോർഡിനോടും കോളേജ് യൂണിവേഴ്സിറ്റി അധികൃതരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്

മഹാരാഷ്ട്ര കർണ്ണാടക ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിലാണ് രാഷ്ട്രപതി ഇന്ന് കർണ്ണാടകയിലെ മൈസൂരുവിൽ മഹാരാജ ശ്രീ

എസ് അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന് രാഷ്ട്രപതി നാളെ ശിലാസ്ഥാപനം നടത്തും ശനിയാഴ്ച ബംഗളൂരുവിൽ സ്വാമി വിവേകാനന്ദ അനുസന്ധാന സൻസ്ഥാന സന്ദർശിക്കും

വെങ്കയ്യനായിഡു ആഫ്രിക്കൻ രാജ്യങ്ങളായ കൊമോറസ് സിയേറ ലിയോൺ പര്യടനത്തിന് ഇന്ന് തുടക്കം കുറിക്കും അഞ്ച് ദിവസമാണ് പര്യടനം ഈ രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യയുടെ ആദ്യ ഉന്നതതല സന്ദർശനമാണിത് ഇന്ന് കൊമോറസിന്റെ തലസ്ഥാനമായ മൊറോനിയിലെത്തുന്ന ഉപരാഷ്ട്രപതി കൊമോറസ് പ്രസിഡന്റ് അസാലി അസ്സോമാഹിയുമായി നാളെ ചർച്ച നടത്തും

ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്രബന്ധങ്ങളുടെ ഭാഗമായാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു

അന്താരാഷ്ട്ര നീയ്മങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തികച്ചും നിന്ദ്യവുമൂായ നടപടിയാണ് തങ്ങളുടെ സഹോദര രാഷ്ട്രത്തിന് നേരെയ്ക്കുണ്ട്ടായതെന്ന് യു എ

നാറ്റോ തലവൻ ജെൻസ് സ്റ്റോൾട്ടൺബർഗും തുർക്കി ്സ്സേൻയുടെ നടപടി അത്യന്തം ഗുരുതരമാണെന്ന് പ്രതികരിച്ചു

ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പുതിയ ചർച്ചകൾക്ക് രണ്ടാം കൂടിക്കാഴ്ച വഴി തുറക്കുമെന്നാണ് നിരീക്ഷണം പുരാതന തുറമുഖ നഗരമായ മഹാബലിപുരം ഇപ്പോൾ മാമല്ലപുരം എന്നാണ് അറിയപ്പെടുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള മാമല്ലപുരം നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുന്നതോടെ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന പുരാതന കാലത്തെ വ്യാപാരം ഒരിക്കൽ കൂടി സ്മരിക്കപ്പെടുകയാണ്

ചൈനയ്ക്ക് അക്കാര്യം വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയിൽ കശ്മീർ വിഷയമായതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു വിദേശകാര്യ വക്താവ് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ മറ്റു രാജ്യങ്ങൾക്ക് അഭിപ്രായം പറയാനാവില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു

എണ്ണ ശുദ്ധീകരണ ശാലയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയുടെ ഇന്നലെ നടന്ന കമ്മീഷനിംഗ് ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പങ്കെടുത്തു മംഗോളിയൻ പ്രധാനമന്ത്രി ഉക്നാഗിൻ ഖുറേൽസുഖും ആറ് ക്ല്യാബിനറ്റ് മന്ത്രിമാരും ഡൊർണോഗോവി പ്രവിശ്യയിലെ ഗവർണറുക് ചട്ടിട്ടിൽ ് സംബന്ധിച്ചു

വിദേശകാര്യമന്ത്രി എസ്

ഇന്ത്യാ തായ്ലാന്റ് സംയുക്ത്രൂക്മ്മീഷന്റെ എട്ടാമത് യോഗത്തിൽ തായ്ലന്റ് വിദേശകാര്യമന്ത്രി പങ്കെടുക്കും

വിവിധ സ്ഥാപനങ്ങളിലെ ഓൺലൈൻ നികുതി സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് ഇരുവരും

ഹൌസിങ് ഡെവലപ്പമെന്റ് ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ രാകേഷ് വദാവന്റേയും അദ്ദേഹത്തിന്റെ മകൻ സാരംഗ് വദാവന്റേയും പി എം സി

അതിനിടെ മരടിൽ അനധികൃത ഫ്ളാറ്റ് നിർമ്മാണം സംബന്ധിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജ്ജിതമാക്കി നിർമ്മാണ രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കും

ആകാശ്വാണിയുടെ എല്ലാ നിലയങ്ങളിലും മത്സരത്തിന്റെ തൽസമയ വിവ്ട്രങ്ങം കേൾക്കാം

കഴിഞ്ഞ തവണ വെങ്കലം നേടിയ താരമാണ് ലവ്ലിന അഞ്ചാം സീഡായ അൾജീരിയയുടെ ഔയ്ദാദ് സൌഫിനെയാണ് ജമുന കീഴടക്കിയത് ക്വാർട്ടറിൽ പോളണ്ടാണ് ലവ്ലിനയുടെ എതിരാളി

ഇന്ത്യയുടെ മേരികോം മഞ്ജുറാണി കവിതാ ചഹൽ എന്നിവർ നേരത്തെ ക്വാർട്ടറിൽ കടന്നു